കോവിഡ് ഭീതിയിൽ സ്കൂളുകൾ തുറക്കാത്ത സാഹചര്യത്തിൽ പഠനം ഓൺലൈൻ വഴി

രവീന്ദ്രനാഥ്

ടി ജലീൽ നിർവഹിക്കും

മാവൂർ സ്വദേശി സുലൈഖയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചത്

സംസ്ഥാനത്ത് ജനശതാബ്ദി ഉൾപ്പെടെ ഏഴു ട്രെയിനുകളാണ് ഓടുന്നത്

കൊവിഡ് ഭീതിയിൽ സ്കൂളുകൾ തുറക്കാത്ത സാഹചര്യത്തിൽ ആരവങ്ങളുമില്ലാതെ പ്രവേശനോത്സവങ്ങളും വീടുകളിലിരുന്ന് സംസ്ഥാന ഗവൺമെന്റ് ആവിഷ്കരിച്ച ഫസ്റ്റ്ബെൽ ഓൺലൈൻ പദ്ധതി വഴിയാണ് വിദ്യാർഥികൾ ഇന്ന് പഠനം ആരംഭിക്കുന്നത് ഒന്നു മുതൽ ബിരുദാനന്തര ബിരുദം വരെ ക്ലാസുകളിലെ വിദ്യാർഥികൾക്ക് ഓൺലൈൻ വഴി പഠനത്തിന് സൌകര്യം ഏർപ്പെടുത്തിക്കഴിഞ്ഞു

ടെലിവിഷനും സ്മാർട്ഫോണും ഇല്ലാത്ത കുട്ടികൾക്ക് നേരിട്ട് ഫോൺ വിളിച്ചും പ്രാദേശിക കേന്ദ്രങ്ങൾ ഒരുക്കിയും ഓൺലൈൻ നിർദേശങ്ങൾ ലഭ്യമാക്കും രുമ അധ്യാപകരും വിദ്യാർഥികളും തമ്മിലെ ജൈവബന്ധം നിലനിർത്തി പുതിയ പഠനാന്തരീക്ഷം ഉണ്ടാക്കണമെന്ന് മന്ത്രി പ്രൊഫ

ഓൺലൈൻ ക്ലാസുകളിൽ അച്ഛനമ്മമാർക്കും പങ്കെടുക്കാമെന്ന് പുതിയ അധ്യയന വർഷത്തിൽ വിദ്യാർഥികൾക്ക് ആശംസകൾ നേർന്ന് മന്ത്രി ആകാശവാണി വാർത്തകളോട് പറഞ്ഞു

പുതിയ സമയക്രമം അനുസരിച്ചായിരിക്കും കോളേജുകളിൽ ഓൺലൈൻ ക്ലാസുകൾ നടത്തുക

കോളേജ് സ്ഥിതിചെയ്യുന്ന ജില്ലയിലെ അധ്യാപകർ പ്രിൻസിപ്പൽ നിശ്ചയിക്കുന്ന റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ കോളേജുകളിൽ ഹാജരാകും മറ്റുള്ളവർ വീടുകളിലിരുന്ന് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യും

ഉയർന്ന രക്തസമ്മർദ്ദവും ഹൃദയാഘാതത്തെയും തുടർന്ന് ഇന്നലെ രാത്രി ഏഴരയോടെയായിരുന്നു മരണം

പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ രോഗബാധിതർ

കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പാലക്കാട് പ്രതിനിധി ഫൈസൽ അലിമുത്ത്

മുഴപ്പിലങ്ങാട് ഇരിട്ടി തലശ്ശേരി കടമ്പൂർ മുഴക്കുന്ന് ആലക്കോട് കോട്ടയം മലബാർ സ്വദേശികൾക്കാണ് രോഗ ബാധ ഉണ്ടായത്

രുമ കോഴിക്കോട് ജില്ലയിൽ ഇന്നലെ രണ്ട് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു

കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ച ഒരു വയസ്സുള്ള കുട്ടിയുടെ മാതാവ് ഖത്തറിൽ നിന്നെത്തി വീട്ടിൽ നിരീക്ഷണത്തിലായിരുന്ന കൊടുവള്ളി സ്വദേശിനിക്കും കഴിഞ്ഞ ബുധനാഴ്ച ദുബായിൽ നിന്നും വിമാനമാർഗം കണ്ണൂരിലെത്തി വടകര കൊറോണ കെയർ സെന്ററിൽ നിരീക്ഷണത്തിലായിരുന്ന നാദാപുരം സ്വദേശി എന്നിവർക്കുമാണ് രോഗംസ്ഥിരീകരിച്ചത് ദേദ ആലപ്പുഴയിൽ ആറും തിരുവനന്തപുരം പത്തനംതിട്ട ജില്ലകളിൽ നാലു വീതവും തൃശൂർ മലപ്പുറം ജില്ലകളിൽ മൂന്നു വീതവും എറണാകുളത്ത് ഒരാൾക്കും ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചു രുമ കൊല്ലംജില്ലയിലെ തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന കുളത്തൂപ്പുഴ ആര്യൻകാവ് തെന്മല പഞ്ചായത്തുകളിൽ ഹോട്ട്സ്പോട്ടിന് സമാനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി

ബ്രസീലിൽ രോഗബാധിതരുടെ എണ്ണം അഞ്ചു ലക്ഷം പിന്നിട്ടു

റിസർവ് ചെയ്തവർക്ക് മാത്രമേ യാത്രാനുമതി ലഭിക്കൂ റിസർവ് ചെയ്യാത്ത കോച്ചുകൾ ട്രെയിനുകളിൽ ഉണ്ടാവില്ല

തിരുവനന്തപുരം കോഴിക്കോട് തിരുവനന്തപുരം തിരുവനന്തപുരം കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി ലോകമാന്യതിലക് തിരുവനന്തപുരം തിരുവനന്തപുരം പ്രതിദിനം എറണാകുളം നിസാമുദ്ധീൻ എറണാകുളം മംഗള എക്സ്പ്രസ് തിരുവനന്തപുരം എറണാകുളം തിരുവനന്തപുരം പ്രതിദിന പ്രത്യേക ട്രെയിൻ തിരുച്ചിറപ്പള്ളി നാഗർകോവിൽ തിരുച്ചിറപ്പള്ളി പ്രതിദിന സൂപ്പർഫാസ്റ്റ് ട്രെയിനുകളാണ് സർവീസ് ആരംഭിക്കുന്നത് ടിക്കറ്റുകൾ ഓൺലൈനായും കൌണ്ടറുകൾ വഴിയും ബുക്ക് ചെയ്യാം മാസ്ക് ധരിച്ചെത്തുന്നവർക്ക് മാത്രമേ ടിക്കറ്റ് നൽകൂ ഞായറാഴ്ചകളിൽ ടിക്കറ്റ് കൌണ്ടറുകൾ തുറക്കില്ല രുമ ട്രെയിൻ യാത്രക്കാർ നിർബന്ധമായും യാത്രയുടെ അര മണിക്കൂർ മുമ്പെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ എത്തണമെന്നും ഇതര സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൂടി കൊണ്ടുവരണമെന്നും കോഴിക്കോട് ജില്ലാ കലക്ടർ സാംബശിവറാവു അറിയിച്ചു ദരര സംസ്ഥാനത്ത് ഇന്നുമുതൽ കൂടുതൽ ബസുകൾ ഓടിത്തുടങ്ങും എല്ലാ റൂട്ടുകളിലും ബസുകൾ സർവീസ് ആരംഭിക്കുമെന്ന് ബസ് ഓപറേറ്റേഴ്സ് ഫെഡറേഷൻ തൃശൂരിൽ അറിയിച്ചു

രദര അറബിക്കടലിൽ കേരള തീരത്തിനടുത്തായി ലക്ഷദ്വീപിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ഇന്ന് രാത്രിയോടെ ചുഴലിക്കാറ്റായി മാറുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചു നിസർഗ എന്ന ചുഴലിക്കാറ്റ് മറ്റന്നാൾ രാവിലെ മഹാരാഷ്ട്ര ഗുജറാത്ത് തീരത്തെത്തും ചുഴലിക്കാറ്റ് കേരളത്തെ ബാധിക്കാനിടയില്ലെങ്കിലും അതിന്റെ പ്രഭാവത്തിൽ അടുത്ത രണ്ടു ദിവസം സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്

തൃശൂർ പാലക്കാട് വയനാട് കോഴിക്കോട് കാസർകോട് ഒഴികെ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ലക്ഷദ്വീപിൽ ഇന്ന് ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്

രുമ വന്ദേഭാരത് ഭൌത്യത്തിൽ മോസ്കോവിൽ നിന്ന് പ്രവാസികളുമായി എയർ ഇന്ത്യ വിമാനം കണ്ണൂർ രാജ്യാന്തര വിമാന താവളത്തിലിറങ്ങി